എട്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദ്രി ്ഉദ്ഘാടനം ചെയ്യും

പണ്ഡിറ്റ് ജസ്രാജിന് ആദരാജ്ഞലികൾ അർപ്പിച്ച് പ്രമുഖർ

ഇന്നലെ പുറത്തിറക്കിയ ഗസറ്റ് വിജ്ഞാപനത്തിലാണ് മന്ത്രാലയത്തിന്റെ പേര് പുനർനാമകരണം ചെയ്യാനുള്ള തീരുമാനത്തിന് രാഷ്ട്രപതി അംഗീകാരം നല്കിയത് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രധാന നിർദ്ദേശങ്ങളിലൊന്നായിരുന്നു ഇത്ട്ട് പ്പീദ്യാഭ്യാസ രംഗത്തിന് കൂടുതൽ പ്രാധാന്യം നല്കാൻ പ്ലൂക്ഷ്യമിട്ടുകൊണ്ടാണ് നടപടി

വിശദാംശങ്ങളുമായി അഞ്ജന

ചിലവ് കുറഞ്ഞതും പുതിയതതും താങ്ങാവുന്നതുമായ സൌരോർജ്ജ സംവിധാനത്തിന് ഉൌന്നൽ നല്കിയുള്ളത്പാകും ഉച്ചകോടി

നോബൽ ജേതാവ് ഡോ

സൌരോർജം കൂടുതൽ കാര്യക്ഷമ്മായി ഉപയോഗപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾക്കക് പ്രചോദ്നീം നൽകുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യകളെപറ്റി ചർച്ച ചെയ്യുകയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു സൌരോർജത്തെക്കുറിച്ചുള്ള ലേഖനങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള സൌർജ ജേർണൽ പുറത്തിറക്കുമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചു ന്യൂസ്ഡസ്ക് ആകാശവാണി

ഉൽപ്പാദന ക്ഷമത അടിസ്ഥാന സൌകര്യങ്ങൾ സാമ്പത്തിക പുരോഗതി യുവജനങ്ങൾക്കായുള്ള വിവിധ അവസരങ്ങൾ എന്നിവയുടെ പുരോഗതിയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു

സംസ്ഥാനങ്ങളിലേയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലേയും വനം മന്ത്രമാർ സെക്രട്ടറിമാർ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ സിംഹങ്ങളുടെയും ഡോൾഫിനുകളുടെയും സംരക്ഷണത്തിനായി പദ്ധതികൾ നടപ്പാക്കുമെന്ന് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു

പദ്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ തുടങ്ങിയ ബഹുമതികൾ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്

പണ്ഡിറ്റ് ജസ്രാജിന്റെ നിര്യാണം ഇന്ത്യൻ സാംസ്കാരിക മേഖലയിൽ ആഴത്തിലുള്ള ശൂന്യത സൃഷ്ടിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

മറ്റു സംഗീതജ്ഞകർക്ക് അദ്ദേഹം നല്ല ഒരു ഉപദേഷ്ടാവായിരുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംഗീത് മാർത്താണ്ഡ് പണ്ഡിറ്റ് ജസ്രാജ് ഇന്ത്യൻ സംഗീതലോകത്തിൽ അദ്ദേഹത്തിന്റെ മാന്ത്രിക ശബ്ദം കൊണ്ട് അവിസ്മരണീയനായ വൃക്തിയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അനുസ്മരിച്ചു

കോവിഡ് വർധിച്ചുവരുന്ന സാഹചരൃവും ഓണത്തിരക്കും കണക്കിലെടുത്ത് മുൻകരുതൽ നടപടികൾ ശക്തമാക്കും വൃാപാരി വൃവസായികളുടെ യോഗം വിളിച്ചുചേർക്കാൻ ജില്ലാ കലക്ടർമാർക്ക് മുഖ്യമന്ത്രി നിർദേശം നൽകി പൊതുയിടങ്ങളിൽ ജനങ്ങൾ സാമൂഹിക അകലം പാലിക്കുന്നുണ്ടെന്ന് പോലീസ് ഉറപ്പ് വരുത്തണം

ഷോപ്പുകൾ രാവിലെ ഏഴു മണി മുതൽ വൈകുന്നേരം ഏഴു മണിവരെ തുറക്കാം ഹോം ഡെലിവറി പ്രോത്സാഹിപ്പിക്കണം സാമൂഹിക അകലം പാലിച്ച് ഹോട്ടലുകളിലും റെസ്റ്റോറൻറുകളിലും ഇരുന്ന് ഭക്ഷണം കഴിക്കാം

കേരളത്തിലേക്ക് വരുന്നവർ കോവിഡ് ജാഗ്രത പോർട്ടിൽ രജിസ്റ്റർ ചെയ്ത് യാത്രാ പാസ് ഹാജരാക്കിയാൽ മാത്രമേ യാത്ര അനുമതി ലഭിക്കു

വെള്ളിയാഴ്ചകളിലും ഞായറാഴ്ചകളിലുമാണ് സർവ്വീസ് നടത്തുക

കൊച്ചിയിൽ ഇറങ്ങുന്ന വിമാനം അതേ ദിവസം തന്നെ ലണ്ടനിലേക്ക് തിരിച്ച് പോകും

വിദേശകാരൃമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സെയ്ദ് അൽ നഹ്യാനുമായി കേന്ദ്രമന്ത്രി എസ്

ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുക അയൽരാജ്യങ്ങളിലെ സംഭവങ്ങൾ എന്നിവ ചർച്ചാ വിഷയമായി വൃാപരം സാമ്പത്തിക സാങ്കേതിക സഹകരണം സംബന്ധിച്ച് ഇന്ത്യ യു എ

എസ് ഇ ബിയുടെ പുതിയ സബ്സ്റ്റേഷനുകൾ യാഥാർഥൃമാകുന്നതോടെ പ്രസരണരംഗത്തും വിതരണരംഗത്തും വലിയ മെച്ചമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഗുണനിലവാരമുള്ള വൈദ്യുതി കോവിഡിനെതിരായ പോരാട്ടത്തിനൊപ്പം വികസനപദ്ധതികൾ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി നിശ്ചിതസമയത്ത് തന്നെ പൂർത്തീകരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു